ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ

ഇതിന്റെ ഭാഗമായി രോഗത്തെ കുറിച്ച് അവബോധം നല്കാൻ ബോർഡുകൾ സ്ഥാപിക്കുക വിമാനത്താവളത്തിലെ ജീവനക്കാർക്ക് ഇതുസംബന്ധിച്ച പരിശീലനം നല്കുക ഏതെങ്കിലും രോഗലക്ഷണങ്ങളുമായി എയർപോർട്ടിലെത്തുന്ന ആളുകളെ പരിശോധനക്ക് വിധേയമാക്കുക തുടങ്ങിയ പ്രാഥമിക നടപടികളാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ആരംഭിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ മെഡിക്കൽ ടീമിനെ പരിശോധനയ്ക്കായി സജ്ജമാക്കിയതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു നിലവിൽ നെടുമ്പാശ്ശേരി ഉൾപ്പടെ രാജ്യത്തെ ഏഴ് വിമാനത്താവളങ്ങളിലാണ് കേന്ദ്രആരോഗ്യ മന്ത്രാലയം പരിശോധനാ നിർദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവിടെയെത്തുന്ന മുഴുവൻ യാത്രക്കാരേയും സ്ക്രീനിംഗിന് വിധേയമാക്കണം

ദക്ഷിണ കൊൽക്കത്തിയിലെ നേതാജിയുടെ വസതിയിൽ പുലർച്ചെ മുതൽ തന്നെ ജീവിതത്തിന്റെ നാനതുറകളിൽപ്പെട്ട ഒട്ടേറെപ്പേർ സ്വാതന്ത്യ സമര നായകന് ആദരാജ്ഞലി അർപ്പിക്കാനെത്തി ദേദ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേതാജിക്ക് ആദരമർപ്പിച്ചു രാജ്യത്തിന് ഏറ്റവും പ്രിയങ്കരനായ ദേശീയ നായകനും സ്വാതന്ത്ര്യസമരത്തിന്റെ മുഖവുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസെന്ന് പ്രസിഡണ്ട് രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുക്കുവാൻ പ്രചോദിപ്പിക്കുകയും ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തുകയും ചെയ്ത നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ട്വിറ്ററിൽ അറിയിച്ചു രുദ സുഭാഷ് ചന്ദ്രബോസിന്റെ ധീരതയും കോളനിവാഴ്ച ചെറുക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനയും രാജ്യം എക്കാലത്തും നന്ദിയോടെ സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

ജാനകിനാഥ് ബോസ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ നേതാജിയെ കുറിച്ച് എഴുതിയ വാചകങ്ങളും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കെവെച്ചു രുദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കീ ബാതിലൂടെ അടുത്ത ഞായറാഴ്ച തന്റെ ചിന്തകൾ ജനങ്ങളുമായി പങ്കുവെക്കും

ഇതിലേക്ക് ജനങ്ങളുടെ ആശയങ്ങൾ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ ഇവ നൽകാം ദേശ റിപ്പബ്ലിക് ദിന പരേഡിന്റെ സമ്പൂർണ്ണ ദിന പരിശീലനം ഇന്ന് ന്യൂഡൽഹിയിൽ രാവിലെ വിജയ് ചൌക്കിൽ ആരംഭിച്ച പരിശീലന പരേഡ് ചെങ്കോട്ടയിൽ സമാപിക്കും രുര നേപ്പാളിൽ മരിച്ച എട്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്നും നാളെയുമായി നാട്ടിലെത്തിക്കും തിരുവനന്തപുരം സ്വദശികളുടെ മൃതദേഹങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്ന് അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ എത്തിക്കും

നാളെ പത്തരയോടെ സംസ്കരിക്കും കോഴിക്കോട് സ്വദേശികളായ രഞ്ജിത്ത്കുമാർ ഭാര്യ ഇന്ദുലക്ഷ്മി മകൻ വൈഷ്ണവ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെ ന്യൂഡൽഹിയിൽ എത്തിക്കും

ദുരന്തത്തിൽ നേപ്പാൾ വിദേശകാര്യ മന്ത്രി പ്രദീപ് കുമാർ ഗ്യാവാലി അനുശോചിച്ചു ഇവർ താമസിച്ചിരുന്ന റിസോട്ടിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോയെന്ന കാര്യം അന്വേഷിക്കാൻ ടൂറിസം വകുപ്പ് അഞ്ചംഗ സമിതി രൂപീകരിച്ചു

ഇത്തരത്തിലൊരു നിർദ്ദേശം രാജ്യത്തെ എല്ലാ കോടതികൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും ജയിൽ അധികൃതർക്കും നൽകണമെന്നും ആഭ്യന്തരമന്ത്രാലയം നൽകിയ ഹരജിയിൽ ആവശ്യപ്പെട്ടു നിർഭയ കേസിലെ പ്രതികളുടെ പുനഃപരിശോധനാ ഹരജികളും ദയാഹരജികളും വിധി നടപ്പാകുന്നത് വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഹർജിക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു

കോഴിക്കോട് പെരുമണ്ണ ഗ്രാമ പഞ്ചായത്തിൽ ലൈഫ് ഭവനപദ്ധതിയുടെ രണ്ടാംഘട്ട താക്കോൽ ദാനവും മെറ്റീരീയൽ കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ദേദ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പദ്ധതിയായ ഗഗൻയാന് മുന്നോടിയായി രണ്ട് ആളില്ലാപേടകം പരീക്ഷണാടിസ്ഥാനത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുമെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോ കെ ശിവൻ ബംഗളൂരുവിൽ അറിയിച്ചു ഈ വർഷം ഡിസംബറിലും അടുത്ത ജൂണിലും ആയിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഡിസംബറിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് പുറമെ പുതിയൊരു ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കാനും ബഹിരാകാശത്ത് മനുഷ്യന്റെ സ്ഥിരസാന്നിധ്യം ഉറപ്പു വരുത്താനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു വിവിധ ഗ്രഹങ്ങളിൽ എത്തിച്ചേരുകയെന്ന ഐ എസ് ആർ ഒ യുടെ ദീർഘകാല ലക്ഷ്യത്തിന് സഹായകമാവുമെന്ന് കരുതുന്ന ദൌത്യത്തിന്റെ വിജയത്തിന് നാസയടക്കം ബഹിരാകാശ ഏജൻസികളുമായി സഹകരിക്കുന്നതിന് ചർച്ചകൾ തുടരുകയാണെന്നും ചെയർമാൻ പറഞ്ഞു ദേഴ സ്ത്രീകളെ പൊലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നതും മൊഴി രേഖപ്പെടുത്തുന്നതും സംബന്ധിച്ച നിലവിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു വ്യവസ്ഥകൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ്തല നടപടിയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു കുറ്റക്വത്യങ്ങൾക്കിരയായ സ്ത്രീ വിവരങ്ങൾ അറിയിക്കുമ്പോൾ വനിതാ പൊലീസ് ഓഫീസർ വിവരം രേഖപ്പെടുത്തേണ്ടതാണെന്ന് ഡി ജി പി പറഞ്ഞു കുറ്റകൃത്യങ്ങൾക്ക് വിധേയയാകുന്ന സ്ത്രീകൾക്ക് നിയമസംരക്ഷണവും ആരോഗ്യ പ്രവർത്തകരുടെയോ വനിതാ സംഘടനകളുടെയോ സഹായം ലഭ്യമാക്കണമെന്നും ബെഹ്റ അറിയിച്ചു രദേശ കോതമംഗലം ചെറിയ പള്ളിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ജില്ലാ കലക്ടർ എസ് സുഹാസ് തൽക്കാലം കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു പള്ളി ഭരണം രണ്ടാഴ്ചക്കകം ഏറ്റെടുത്ത് റിപ്പോർട്ട് നൽകണമെന്ന കോടതി ഉത്തരവ് പുനപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ കോടതിയിൽ റിവ്യൂ ഹർജി നൽകി

പുനപരിശോധനാ ഹർജി തിങ്കളാഴ്ചയും കോടതിയലക്ഷ്യ ഹർജി ചൊവ്വാഴ്ചയും കോടതി പരിഗണിക്കും രദേശ ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും

ദേദ പത്താമത് ദേശീയ സീനിയർ വനിത ഹോക്കി മത്സരങ്ങൾക്ക് കൊല്ലത്ത് തുടക്കമായി

ദേദ തലശ്ശേരിയിൽ കേണൽ സി

കേരളത്തിന്റെ ആനന്ദ് അഷ്ണനും അശ്വിൻ ആനന്ദും സെഞ്ച്വറി നേടി രുമ ഐ ലീഗ് ഫുട്ബാളിൽ അടുത്ത ഹോം മത്സരത്തിൽ ഞായറാഴ്ച ഗോകുലം കേരള എഫ്

മോഹൻ ബഗാൻ ഈസ്റ്റ്ബംഗാൾ മുഹമ്മദൻസ് തുടങ്ങിയ ക്ലബ്ബുകളുടെ താരമായിരുന്നു ധനരാജൻ ദേഴ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പോത്സവം ഇന്നാരംഭിക്കും പോലീസ് മൈതാനിയിൽ വൈകീട്ട് മന്ത്രി ഇ

വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാവും

എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപത്തെ ഓടയിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ നേത്വത്വത്തിലാണ് അന്വേഷണം ദേദ കൊച്ചി എരൂരിൽ സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നടൻ ഭരത് മുരളിയുടെ ശില്പം തകർത്ത സംഭവത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചു

ഇന്ന് രാവിലെ റേഷൻ കടതുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം കടയുടമ അറിയുന്നത്

രുമ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വയനാട് ജില്ലാ ഘടകം പിരിച്ചു വിട്ടു അഴിമതിയും കെടുകാര്യസ്ഥതയും സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നു തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി